ഇന്തൃയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളിലെ ജലം പങ്കുവെക്കുന്നത് അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരു മാനം

സദാശിവം ഇന്ന് ഉദ്ഘാടനം ചെയ്യും

തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഇന്ന് കേരളത്തിലെത്തും പെരിയ ഇരട്ട കൊലപാതകം സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ നൽകാനുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് നൽകുകയാണ് വേണ്ടതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ

നിന്ദ്യമായ ഈ ഭീകരപ്രവർത്തി നടത്തിയവരേയും ആസൂ ത്രണം ചെയ്തവരേയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സുരക്ഷാ കൌൺസിൽ ആവശ്യപ്പെട്ടു ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പേരെടുത്ത് പറഞ്ഞാണ് പുൽവാമ ആക്രമ ണത്തെ സുരക്ഷാ കൌൺസിൽ അപലപിച്ചത് നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇതുസംബന്ധിച്ച കുറിപ്പ് പുറത്തിറക്കിയത് ഇതേപറ്റി ചിന്തിക്കാൻ കൂടുതൽ സമയം വേണമെന്ന ചൈനയുടെ ആവശ്യ മാണ് ചർച്ച നീളാൻ ഇടയാക്കിയത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളിലെ ജലം പങ്കുവയ്ക്കുന്നത് അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു കേന്ദ്ര ജല വിഭവ മന്ത്രി നിഥിൻ ഗഡ്കരി ട്വിറ്ററിൽ അറിയിച്ചതാണ് ഇക്കാര്യം കിഴക്കൻ മേഖലയിലെ ബിയസ് രവി സത് ലജ് എന്നീ നദികളിലെ ജലം പങ്കുവയ്ക്കുന്നതാണ് അവസാനിപ്പിക്കുന്നത് ഇൌ നദികളിലെ വെളളം ജമ്മുകാശ്മീരിലേക്കും പഞ്ചാബിലേക്കും തിരിച്ചുവിടും നദീജലകരാർ പ്രകാരം ഈ മൂന്ന് നദികളിലെ ജലം കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഇന്തൃക്കും ഇൻഡസ് ഝലം ചെനാബ് നദികളിലെ വെളളം കൈകാരൃം ചെയ്യാനുള്ള അവകാശം പാകിസ്ഥാനുമാണ് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്നത് ഉൾപ്പെടെ പുനർ വിളംബരം ചെയ്ത നാല് ഓർഡിനൻസുകൾക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകാരം നൽകി ഭാര്യയെ മൂന്ന് തലാഖും ഒരുമിച്ച് ചൊല്ലി വിവാഹമോചനം നടത്തുന്ന പുരുഷന് മൂന്ന് വർഷംവരെ തടവും പിഴയും ലഭിക്കുമെന്നാണ് മുത്തലാഖ് ഓർഡിനൻസിലെ പ്രധാന വൃവസ്ഥ മുത്തലാഖ് ബിൽ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ നിയമമാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതേ തുടർന്നാണ് വീണ്ടും ഓർഡിനൻസ് കൊണ്ടുവന്നത്

കരിപ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം വീഡിയോ കോൺഫറൻസിംഗ് വഴി ഇന്ന് ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ

ജലീൽ എംപിമാർ എംഎൽഎമാർ തുടങ്ങിയവരും സംബന്ധിക്കും

ഇതോടെ നിലവിലെ ആഗമന ടെർമിനൽ ആഭ്യന്തര യാത്രക്കാരുടെ പുറപ്പെടൽ കേന്ദ്രമായി മാറും

കണ്ണൂർ കല്ല്യാട്ട് സ്ഥാപിക്കുന്ന അന്താരാഷ്ട്ര ആയൂർവേദ ഗവേ ഷണ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം ഇന്ന് വൈകീട്ട് മുഖ്യമന്ത്രി പിണ റായി വിജയൻ നിർവഹിക്കും ഉത്തര മലബാറിന്റെ വികസനത്തിനും ആയൂർവേദ മേഖലക്കും വലിയ സംഭാവനയായി മാറുമെന്ന് കരുത പ്പെടുന്ന കേന്ദ്രം ഇത്തരത്തിലുള്ള രാജ്യത്തെ ആദൃത്തെ ഏറ്റവും വലിയ സംരംഭമാണ് മൺമറഞ്ഞ് പോകുന്ന നാട്ടറിവുകളേയും ഔഷധ സസ്യങ്ങളേയും സംരക്ഷിച്ച് ശാസ്ത്രീയമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് ആയൂർവേദ അറിവും ലോക മെങ്ങുമുള്ള പാരമ്പര്യ ചികിത്സാ രീതികളും പ്രദർശിപ്പിക്കുന്ന അന്താ രാഷ്ട്ര മ്യൂസിയവും ഇതിന്റെ ഭാഗമായി നിലവിൽ വരും കണ്ണൂർ മാങ്ങാട്ട് പറമ്പിൽ ആരംഭിക്കുന്ന സ്റ്റാർട്ട് അപ്പ് ഇൻക്യു ബേഷൻ സെന്റർ ഇന്ന് വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും

പാലക്കാട്ട് ലോക്സഭാ മണ്ഡലങ്ങളുടെ പ്രഭാരിമാർ വിസ്താരക് ബിജെപി കൺവീനർമാർ ജില്ലാ അധ്യക്ഷൻമാർ എന്നിവരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും കോട്ട മൈതാനത്ത് നടക്കുന്ന പൊതു സമ്മേ ളനത്തിലും പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികാ പേജ് പ്രമുഖർ പൊന്നാനിമലപ്പുറം മണ്ഡലങ്ങളിലേതടക്കം ബൂത്ത്തല കൺവീനർമാർ എന്നിവരുടെ യോഗത്തിലും അമിത് ഷാ പങ്കെടുക്കും ബിജെപി സംസ്ഥാന ഭാരവാഹികളുടെ യോഗവും ഇന്ന് രാവിലെ പാലക്കാട്ട് ചേരുന്നുണ്ട് കാസർകോട് പെരിയയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്ത കർ വധിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ അഞ്ച് പ്രതികളെ ഇന്ന് സംഭ വസ്ഥലത്തെത്തിച്ച് പൊലീസ് തെളിവെടുക്കും ഏച്ചിലടുക്കം സ്വദേശി കെ

സുരേഷ് കെ അനിൽകുമാർ കുണ്ടംകുഴി സ്വദേശി അശ്വിൻ എന്ന അപ്പു ശ്രീരാഗ് കാഞ്ഞിരടുക്ക് സ്വദേശി ഗിജിൻ എന്നിവരെ യാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് നേരത്തെ കേസു മായി ബന്ധപ്പെട്ട് സിപിഐഎം ലോക്കൽ കമ്മറ്റി അംഗം പീതാംബ രൻ സജി ജോർജ് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകി ഗവൺമെന്റ് ഉത്തരവിറക്കി കേസന്വേഷണം ഏറ്റെടുക്കാൻ ക്രൈംബ്രാഞ്ച് എഡിജിപി ഷേക്ക് ധർവേസ് സാഹിബിന് പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദേശം നൽകി പെരിയ ഇരട്ട കോലപാതക കേസ് സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ നൽകാനുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് നൽകുകയാണ് വേണ്ടതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു മാധ്യമങ്ങളോട് പറഞ്ഞ് അന്വേഷണം നടത്തുന്നത് ഫലപ്രദമാകില്ല എല്ലാ സംഭവ ങ്ങളും സിബിഐ അന്വേഷിച്ചാൽ മതിയെങ്കിൽ കേരള പൊലീസ് പിരിച്ചുവിടുകയല്ലെ നല്ലതെന്നും അദ്ദേഹം ചോദിച്ചു

സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സുസ്ഥിതിക്കും ക്ഷേമത്തി നുമായി വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ഡോ

കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഭിന്നശേഷി ക്കാരായ യുവജനതക്കായി സംസ്ഥാനതലത്തിൽ സംഘടിപ്പിച്ച ആദ്യത്തെ പ്രീമാരിറ്റൽ കൌൺസിലിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹി ക്കുകയായിരുന്നു മന്ത്രി ഭിന്നശേഷിക്കാരെ വിദ്യാഭ്യാസത്തിലൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി ഗവൺമെന്റ് വിവിധ പദ്ധ തികൾ ആവിഷ്ക്കരിച്ച് നടപ്പാക്കുമെന്നും പ്രത്യേക പരിശ്രീലന കേന്ദ്ര ങ്ങൾ ആരംഭിക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും മന്ത്രി ജലീൽ വ്യക്തമാക്കി

കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ചുവില ലഭ്യമാക്കാൻ ഇടുക്കി പാക്കേജ് സഹായിക്കുമെന്ന് സംസ്ഥാന ആസുത്രണ സമിതി അംഗം പ്രൊഫ രാം കുമാർ പറഞ്ഞു ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോ ഷത്തോടനുബന്ധിച്ച് ഇടുക്കി ഐഡിഎ ഗ്രൌണ്ടിൽ നടക്കുന്ന പ്രദർശന വിപണന മേളയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മുഖ്യപ്ര ഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട എസ്എൻസി ലാവ് ലിൻ കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധിക്ക് എതിരെ സിബിഐ നൽകിയ ഹർജിയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് എതിരെ കസ്തൂരി രംഗൻ അയ്യർ ആർ ശിവദാസ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികളുമാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കുക

ന്യൂഡൽഹിയിൽ തൊഴിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ട്രസ്റ്റി ബോർഡ് യോഗത്തിലാണ് തീരുമാ റായ്പൂരിൽ ദേശീയ യൂത്ത് അത്ലറ്റിക്സ് വനിതാ വിഭാഗത്തിൽ കേരളത്തിന് കിരീടം

ഐഎസ്എൽ ഫുട്ബോളിൽ ബെങ്കളൂരു എഫ്സിക്ക് ജയം ബെങ്കളൂരുവിൽ എഫ്സി ഗോവയെ എതിരില്ലാത്ത മൂന്ന് ഗോളിനാണ് തോൽപ്പിച്ചത് ജയത്തോടെ ബെങ്കളൂരു എഫ്സി പോയിന്റ് പട്ടിക യിൽ ഒന്നാം സ്ഥാനത്തെത്തി ചെന്നൈയിൽ പ്രോ വോളി ലീഗ് ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് ഹീറോസും ചെന്നൈ സ്പാർട്ടൻസും ഏറ്റുമുട്ടും വൈകീട്ട് ഏഴി നാണ് മത്സരം പൊതുവിദ്യാലയങ്ങൾക്ക് അഭിവൃദ്ധിയുണ്ടാകുന്നത് അതത് പ്രദേ ശത്തെ ജനങ്ങളുടെ ഫലപ്രദമായ ഇടപെടലിലൂടെയാണെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു

രണ്ടു വർഷത്തിനിടെ പൊതുവിദ്യാലയങ്ങിൽ മൂന്നുലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം വിദ്യാർത്ഥികൾ വർദ്ധിച്ചതായി അദ്ദേഹം അറി യിച്ചു കണ്ണൂർ പെരളശേരിയിൽ മുണ്ടല്ലൂർ ന്യൂ എൽപി സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകായിരുന്നു മുഖ്യമന്ത്രി കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായി പാലക്കാട്ടും കുട്ടനാട്ടും തൃശൂരും റൈസ് പാർക്കുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി ഇ

ജയരാജൻ പറഞ്ഞു

കാഞ്ഞങ്ങാട് പടന്നക്കാട് സംഘടിപ്പിച്ച ജില്ലാതല നിക്ഷേപക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വനത്തിൽ കഴിയുന്ന ആദിവാസികളടക്കമുള്ളവരെ പുറത്താ ക്കണമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് അപ്പീൽ നൽകുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ പറഞ്ഞു

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്ക് വോട്ട് ചെയ്യു ന്നതിനും അവരെ തിരിച്ചെത്തിക്കുന്നതിനും സൌകരൃമൊരുക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃക്തമാക്കി നിലവിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണ് ഇത്തരം വോട്ടർമാരെ പോളിംഗ് ബൂത്തി ലെത്തിക്കുന്നത്